ഊർജ്ജിതമാക്കി സംസ്ഥാനം നീയന്ത്രണം കർശനം

പൂരത്തിന് നാളെ കൊടിയേറും

സൂപ്പർ കിംങ്സ് പോരാട്ടം

കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ ആയിരത്തിന് മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു

ഇന്നും നാളെയുമായി രണ്ടര ലക്ഷം പേരെ കോവിഡ് പരിശോധനയ്ക്കു വിധേയരാക്കുമെന്ന് ഇന്നലെ നടന്ന അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചിരുന്നു മുൻനിര തൊഴിലാളികൾ പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നവർ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ഹോട്ടലുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ തുടങ്ങി വൃതൃസ്ത മേഖലകളിലുള്ളവരിൽ പരിശോധന നടത്തും

ആറു ലക്ഷം പേരാണ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ചത്

വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർബാബു

ഓക്സിജൻ ലഭൃത ഉറപ്പാക്കുന്നതിന് വിവിധ മന്ത്രാലയ്ങ്ങൾ സംസ്ഥാന ഭരണകൂടങ്ങൾ എന്നിവ തമ്മിലുള്ള സഹ്കരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

ആരാധനാലയങ്ങൾക്കുള്ളിൽ സ്ഥലവിസ്തൃതിയുടെ പകുതിയിൽ താഴെ ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മത സാമുദായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണു നിർദേശങ്ങൾ

രോഗികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു

കലാമണ്ഡലം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള കലാമണ്ഡലത്തിൽ സന്ദർശകർക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി

കോവിഡ് കാലത്ത് ആശുപത്രി സന്ദർശനം ഒഴിവാക്കി വീട്ടിൽ ഇരുന്നുകൊണ്ടുതന്നെ ചികിത്സ തേടാനാണ് കഴിഞ്ഞ വർഷം ജൂണിൽ ഇ സഞ്ജീവനി ആരംഭിച്ചത്

വി ശിവദാസനും സി പി ഐ എമ്മിന്റെ രാജ്യസഭാ ്സ്ഥാനാർത്ഥികളായേക്കുമെന്ന് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായത് രാവിലെ അവയിലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന ശേഷമാണ് സ്ഥാനാർത്ഥിത്വത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനമെടുക്കാമെന്ന അനുമതി ലഭിച്ചത്

രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വിഷുക്കിറ്റ് വിതരണം നിറുത്തി വച്ചത് ജനങ്ങളോട് സർക്കാർ ചെയ്ത വഞ്ചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

വോട്ട് പിടിക്കുക മാത്രമായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി

തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മികച്ച വിജയം നേടാനാകുമെന്ന് സിപിഎം

മുരളീധരനും പറയുന്നത് ഒരേ വാക്കുകളാണെന്നും ചെന്നിത്തലയും വി മുരളീധരനും ചേർന്ന് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജ്യോവധം ചെയ്യുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇട്ടിരുമുന്നണി പ്രവർത്തകർ കോവിഡ് പ്രതിരോധ പ്രവർത്ത്നങ്ങളിൽ സജീവമായി പങ്കാളികളാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

വാക്സിൻ എടുത്ത എല്ലാവർക്കും ഘടക പൂരത്തിന്റെ ഭാഗമാകാമെന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്

നാളെയും മറ്റന്നാളും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലിനും സാധൃതയുണ്ട്

മഴയ്ക്കൊപ്പം ഉണ്ടായ ആലിപ്പഴം വീഴ്ചയിലും ശക്തമായ കാറ്റിലും ഏക്കറ് കണക്കിന് കൃഷിവിളകൾ നശിച്ചു

ഇതോടൊപ്പം ഏല്പു്ം കപ്പയും അടക്കമുള്ള കൃഷികളും നശിച്ചിട്ടുണ്ട്

എം ഷാജി എം എൽ

ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത പണം സ്വർണം എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകൾ ഒരാഴ്ചയ്ക്കകം ഹാജരാക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വരവിൽകവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്

ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തി

തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പുറമേ വി വി പാറ്റും ഉപയോഗിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ത്രീരുമാനിച്ചിട്ടുണ്ട്